തുടങ്ങി പ്രളയ ദുരിതാശ്ചാസത്തിന് ലോകബാങ്ക് വായ്പക്ക് ശ്രമിക്കുമെന്ന് ഗവർണർ ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി മാനിക്കുന്നു

ജോക്കോവിച്ച് ഇന്ന് ലൂക്കാസ് പോലിയെ നേരിടും

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി ഏഴ് മണിക്ക് പരിപാടി പ്രക്ഷേപണം ചെയ്യും ദൂരദർശന്റെ എല്ലാ ചാനലുകളും രാഷ്ട്രപതിയുടെ ഇംഗ്ലീഷിലും തുടർന്ന് ഹിന്ദിയിലുമുള്ള പ്രസംഗം സംപ്രേഷണം ചെയ്യും

രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് രാവിലെ ആചാരപരമായ വരവേൽപ്പ് നൽകി

ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായെത്തുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റാണ് രാമഫോസ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ വിഷയങ്ങളിന്മേലുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പു വയ്ക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വാണിജ്യ ഫോറത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് രാമഫോസയുടെ സന്ദർശനം ഉപകരിക്കും പത്നി ഡോ

നാളെ രാഷ്ട്രപതി ഭവനിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിരുന്നൊരുക്കും

ഇതിൽ ് ഒരാളെ കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രി രാജ്ഘട്ടിൽ നിന്നും ആയുധശേഖരത്തോടെയാണ് പിടികൂടിയതെന്ന് ഡൽഹി പൊലീസ് കമ്മീഷണർ പ്രമോദ് സിങ് കുശ്വാഹ അറിയിച്ചു ജമ്മുകശ്മീരിൽ വിവിധ ഇടങ്ങളിലെ ഗ്രനേഡ് ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഇയാളെന്ന് പൊലീസ് കരുതുന്നു മറ്റൊരാളെ കശ്മീരിലെ ബന്ദിപോരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്

എന്നാൽ തീരുമാനം കോടതി സ്റ്റേ ചെയ്തില്ല സാമ്പത്തിക സംവരണത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികളിൽ പരമോന്നത കോടതി കേന്ദ്രത്തിന് നോട്ടീസയച്ചു നാലാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗെഗോയ് അധ്യക്ഷനായ ബഞ്ച് ഉത്തരവിട്ടു

സമ്പൂർണവും സമഗ്രവുമായു പങ്കാളിത്തം ഉറപ്പ് വരുത്തുക എന്നതാണ് ലക്ഷ്യം ഒരു റിപ്പോർട്ട്

വോട്ടർപട്ടികയിൽ അർഹരായ എല്ലാവരുടേയും പേർ ഉൾപ്പെടുത്തുക പുതിയ വോട്ടർമാരെ ഇതിനായി പ്രോത്സാഹിപ്പിക്കുക വോട്ടവകാശത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക എന്നിവയാണ് ദിനാഘോഷം ലക്ഷ്യമിടുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സമ്മതിദായകനും വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കരുത് എന്നതാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ മുഖ്യ ആശയം ദിനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ഭൂട്ടാൻ കസാഖിസ്ഥാൻ മാലദ്ധീപ് റഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉയർന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമനും മാലദ്വീപ് പ്രതിരോധമന്ത്രി മരിയ അഹമ്മദ് ദിദിയും തമ്മിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് തിരുമാനമെടുത്തത്

നാലാംഘട്ട ബഹിരാകാശ റോക്കറ്റ് ഉപയോഗിക്കുന്ന ആദ്യരാജ്യമാണ് ഇന്തൃ

ലിംഗസമത്വത്തിനുംവേണ്ടി ഗവൺക്മുന്റ് നിലകൊള്ളുകയാണെന്ന് ഗവർണർ പറഞ്ഞു ശബരിമല് വീഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്

പ്രളയത്തെ നേരിടാൻ ഗവൺമെന്റ് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി പ്രളയ ദുരിതാശ്വാസത്തിന് ലോകബാങ്കിന്റേയും എ ഡി ബി യുടെ വായ്പ ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണ് കൃത്യമായ ആസൂത്രണത്തോടെ പുനർനിർമ്മാണ പ്രവർത്തനം തുടർന്ന് വരികയാണെന്ന് ഗവർണർ പറഞ്ഞു

ഒൻപത് ദിവസം സഭ സമ്മേളിക്കും

വെങ്കയ്യ നായിഡു ഒരു ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തമാസം രണ്ടിന് കേരളത്തിലെത്തും അന്നു ഉച്ചതിരിഞ്ഞ് കൊല്ലം പ്രസ് ക്സബ്ബിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും സുവർണ ജൂബിലി ആഘോഷ ശിലാ ഫലകത്തിന്റെ അനാച്ഛാദനവും സ്മാരക തപാൽ സ്റ്റാമ്പിന്റെ പ്രകാശനവും അദ്ദേഹം നിർവ്വഹിക്കും

വിശദാംശങ്ങളുമായി ഗോപകുമാർ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി

ഝാർഖണ്ഡാണ് ധാരണാപത്രത്തിൽ ആദ്യം ഒപ്പുവച്ചതെന്ന് സെക്രട്ടറി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആദ്യ സെമിയിൽ സ്പെയിനിന്റെ റാഫേൽ നദാൽ ഗ്രീക്ക് താരം സ്റ്റെഫാനോസ് സ്റ്റിറ്റ്സിപസിനെ പരാജയപ്പെടുത്തി